എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഈസ്റ്റ് ബംഗാളിനെ നേരിടും വാർത്തകൾ വിശദമായി രാജ്യത്ത് കോവിഡ് മഹാമാരിയുടെ വളർച്ച രണ്ട് ശതമാനമായി കുറഞ്ഞുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ പറഞ്ഞു

ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ഉത്സവകാലത്ത് കോവിഡ് കേസുകൾ ഗണ്യമായി വർദ്ധിച്ചില്ലെന്നും സമഗ്രമായ പരിശോധനയും രോഗികളെ കണ്ടെത്തി ചികിത്സിച്ചതുമാണ് ഇതിന് കാരണമെന്നും ഡോക്ടർ ഹർഷവർദ്ധൻ അറിയിച്ചു ടെട്ട കോവിഡ് വ്യാപനത്തിന്റെ കാര്യത്തിൽ അടുത്ത രണ്ടാഴ്ച സംസ്ഥാനത്തിന് ഏറെ നിർണായകമെന്ന് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ രോഗവ്യാപനം കൂടിയേക്കാമെന്ന ആശങ്കയുണ്ട് അതിനാൽ ഓരോ വ്യക്തിയും സ്വയം ലോക്ഡൌൺ പ്രഖ്യാപിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ഗവൺമെന്റ് നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാക്കിയെങ്കിലും സ്വയം നിയന്ത്രണം അത്യാവശ്യമാണ് കുട്ടികളുമായി പുറത്തു പോകുന്നതും കുടുംബസമേതം വിവാഹച്ചടങ്ങുകളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കുന്നതും ഒഴിവാക്കണം വാക്സിൻ വരുന്നതുവരെ നാം കാത്തു നിൽക്കണമെന്നും മന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പിനൊപ്പം കോവിഡും പോയി എന്ന ചിന്ത അരുതെന്നും മന്ത്രി പറഞ്ഞു ടെട്ടി സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം അറുപതിനായിരത്തിന് മുകളിലായി

ടെട്ട കൊറോണ മഹാമാരിയുടെ വ്യാപനം ഇത്രയും വർദ്ധിക്കാൻ കാരണം നമ്മുടെ അനുസരണയില്ലായ്മയാണെന്ന് സംവിധായകൻ സലാം ബാപ്പു പറഞ്ഞു

എഫിൽ അത്തരം ജനാധിപത്യ വിരുദ്ധവും അസാധാരണവുമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ യു ഡി

കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയുവാനും കോൺഗ്രസിനെ ആര് നയിക്കണം എന്ന് തീരുമാനിക്കാൻ കേന്ദ്രമായി ലീഗ് മാറിയോയെന്നും പിണറായി ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചു ടെട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലവാരമില്ലായ്മയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

സി പ്രസിഡന്റിന്റെ കാര്യത്തിൽ ലീഗ് ഇടപെടുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് നിലവാരം കുറഞ്ഞതാണെന്ന് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം

ലീഗ് മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അവസരങ്ങൾക്കനുസരിച്ച് ഭൂരിപക്ഷ കാർഡും ന്യൂനപക്ഷ കാർഡും മാറ്റികളിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും അദ്ദേഹം ആരോപിച്ചു ടെട തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചില പാളിച്ചകൾ സംഭവിച്ചതായി തിരുവനന്തപുരത്ത് ചേർന്ന യു

എഫ് ഏകോപന സമിതി വിലയിരുത്തി പ്രചാരണ രീതികളുടെ പരിമിതിയും പ്രചാരണത്തിൽ പൊതു രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കാൻ കഴിയാതിരുന്നതും തിരിച്ചടിയായെന്ന് യോഗം അഭിപ്രായപ്പെട്ടു രുട തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും

അടുത്തവർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അസം തമിഴ്നാട് പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിക്കും ഇതേ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഗവൺമെന്റ് ഓഫീസർമാരെ അവരുടെ സ്വന്തം ജില്ലകളിൽ നിയമിക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്

ടെട്ട സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളജുകൾ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടുത്തമാസം നാലിന് തുറക്കാൻ സാധ്യത ഇതുസംബന്ധിച്ച ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങുമെന്ന് മന്ത്രി കെ

കോളജുകൾ തുറക്കുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി ടെട്ട ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ എഫ്

അനിവാര്യമായ ജയം ലക്ഷ്യമിട്ടാണ് രണ്ട് പോയിന്റോടെ ഒൻപതാം സ്ഥാനത്തു നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വൈകിട്ട് ഏഴരയ്ക്ക് ഗോവയിൽ കളിക്കാനിറങ്ങുന്നത് വൈകിട്ട് അഞ്ചിന് ആദ്യമത്സരത്തിൽ ഹൈദരാബാദ് എഫ്സി മുംബൈ സിറ്റിയുമായി മത്സരിക്കും ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സി ഗോവ എഫ് സിയെ ഒന്നിനെതിരെ രണ്ടു ഗോളുകൾക്ക് തോൽപ്പിച്ചു

എസ് സൈദ്ധാന്തികനും മുതിർന്ന പത്ര പ്രവർത്തകനുമായ എം ജി വൈദ്യ അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് നാഗ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകീട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം

ഇന്ന് രാവിലെ നാഗ്പൂരിലെ അംബസാരി ഘട്ടിൽ മൃതദേഹം സംസ്കരിക്കും

ജി വൈദ്യയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു ദശകങ്ങളോളം ആർ

എസ് പ്രവർത്തനങ്ങളിൽ സംഭാവനകളർപ്പിച്ച അദ്ദേഹം ബി

പിയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിച്ചെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ പറഞ്ഞു

പിയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശസ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സംഗമം ഇന്ന് ഉച്ചയ്ക്ക് കോഴിക്കോട്ട് നടക്കും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും ടെട്ടി കേരളത്തിലാദ്യമായി കർഷകരുടെ സ്വന്തം വിപണിക്ക് തുടക്കം കുറിച്ച കാഡ്സിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കർഷക വിപണിക്ക് തൊടുപുഴയിൽ നാളെ തുടക്കം കുറിക്കും

ഡിജിലോക്കർ വെബ്സൈറ്റിൽ മൊബൈൽ നമ്പറും ആധാർ നമ്പറും ഉപയോഗിച്ച് അക്കൌണ്ട് തുറന്ന് മാർക്ക്ലിസ്റ്റ് ഡൌൺലോഡ് ചെയ്യാം ഈ സർട്ടിഫിക്കറ്റുകൾ ആധികാരിക രേഖയായി ഉപയോഗിക്കാവുന്നതാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി